ലക്ഷം

രണ്ട് കോർപ്സ് കമാൻഡർമാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന രണ്ടാമത് ചർച്ചയാണിത് നേരത്തെ ജൂൺ ആറിന് നടന്ന ചർച്ചയിൽ അതിർത്തിയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് സൈനികരെ പിൻവലിക്കാൻ ഇരുരാജ്യങ്ങളും തമ്മിൽ ധാരണയായിരുന്നു

റഷ്യൻ മേജർ ജനറൽ കൊസ്നെകോ വാസിലി അലക്സാണ്ട്രോ വിച്ചും റഷ്യിയിലെ ഇന്ത്യൻ അംബാസിഡർ വെങ്കിടേഷ് വർമ്മയും ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചു പ്രതിരോധ രംഗത്തെയും നയതന്ത്ര മേഖലയിലെയും ഇന്ത്യ റഷ്യ പങ്കാളിത്തം കൂടുതൽ ദൃഢമാക്കുന്നതിന് അദ്ദേഹം ചർച്ചകളിലേർപ്പെടും

ഇന്ത്യ ചൈന അതിർത്തി സംഘർഷ്ടരിതമായ സാഹചര്യത്തിൽ രാജ്യരക്ഷാ മന്ത്രിയുടെ ദൃഷ്ട്രൻ സന്ദർശനം അതീവ പ്രാധാന്യം ഉള്ളതാണ്

സംഭവത്തിൽ ആർക്കും പരിക്കേറ്റതായി റിപ്പോർട്ട് ഇല്ല

അതിനിടെ നൌഷേരാ സെക്ടറിൽ പാക്സേന വെടിനിർത്തൽ കരാർ ലംഘിച്ചു മോർട്ടാർ ആക്രമണം നടത്തിയ പാക്സേനയ്ക്കെതിരെ ഇന്ത്യ ശക്തമായി തിരിച്ചുടിച്ചു

പകർച്ച വ്യാനി സംബന്ധിച്ച പഠനത്തിലും കൈകാര്യം ചെയ്യുന്ന രീതിയിലും മാറ്റം ഉണ്ടാക്ടു്മെന്ന് കേന്ദ്ര മന്ത്രി ജിതേന്ദ്ര സിംഗ്

രാജ്യത്തെ മെഡിക്കൽ വിദ്യാഭ്യാസ സ്ഥാപന പ്രതിനിധികളുമായി നടത്തിയ വീഡിയോ കോൺഫെറൻസിംഗിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കഴിഞ്ഞ മൂന്നു ദശാബ്ദ കാലം മെഡിക്കൽ വിദ്യാഭ്യാസം പകർച്ചയേതര രോഗങ്ങൾക്കാണ് പ്രാധാന്യം നൽകിയിരുന്നത് എന്നാൽ കോവിഡ് ലോകത്താകമാനം ചികിത്സ മേഖലയിൽ പുതിയ തിരിച്ചറിവ് നല്കിയിരിക്കുകയാണെന്നും അദ്ദേഹം അറിയിച്ചു

ഷാർജ ഫിലിപ്പെയ്ൻസ് മസ്ക്കറ്റ് ദോഹ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നാണ് പ്രവാസികൾ എത്തിയത്

സുരക്ഷിതമായ ഡിജിറ്റൽ പെയ്മെന്റ് രീതികൾ സംബന്ധിച്ചും പിൻ ഒ ടി പി പാസ്സ്വേർഡ് തുടങ്ങിയ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് ഒഴിവാക്കുന്നത് സംബന്ധിച്ചും പരിപാടിയലൂടെയും പ്രചാരണങ്ങളിലൂടെയും ഇ ബാത് ബോധവത്കരണ പരിപാടികൾ സംഘടിപ്പിച്ച വരുന്നതായി റിസേർവ് ബാങ്ക് അറിയിച്ചു

സംസ്ഥാനത്ത് ഇന്നലെ നാല് പുതിയ ഹോട്ട് സ്പോട്ടുകൾ കൂടി നിലവിൽ വന്നു

ബ്രിട്ടുമ്പിൽ നടന്ന മരുന്നിന്റെ പരീക്ഷണത്തെ കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വന്നപ്പോൾ തന്നെ മരുന്നിന് ആവശ്യക്കാർ വർദ്ധിച്ചിരുന്നെങ്കിലും ഉത്പാദനത്തിൽ വർദ്ധനയുണ്ടായിട്ടില്ല

ചില രാജ്യങ്ങളിൽ കൂടുതൽ പരിശോധന നടക്കുന്നത് കൊണ്ടാണ് രോഗബാധിതരുടെ എണ്ണം കൂടുതൽ ഉള്ളതെന്ന വാദം ലോകാരോഗൃക്ക് ശ്രീംഘടന അടിയന്തിര വിഭാഗം തലവൻ ഡോക്ടർ മൈക്കൽ റ്യാൻ നിഷേധിച്ചു

മധ്യവേനൽ അവധികാലത്തേക്കുള്ള സെക്യൂരിറ്റി അലവൻസായാണ് ഭക്ഷ്യൂകിറ്റ് നല്കുക